അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറ്റായി വിജയൻ

കൊച്ചി മരടിലെ ഫ്ള്ളാറ്റുകൾ പൊളിക്കുന്നതിന് കെട്ടിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന പ്രവൃത്തി അന്തിമ ഘട്ടത്തിൽ ശബരിമല യൂവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോഴിക്കോട് ഐ ലീഗ് ഫുട്ബോൾ ഹോം മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് നിലവിലെ ചാമ്പ്യൻമാരായ ചെന്നൈ സിറ്റി എഫ് സി യെ നേരിടും

ചൊവ്വാഴ്ച ദ്വീപ് സമൂഹത്തിൽ എത്തിയ രാഷ്ട്രപതി ആസ്ഥാന ദ്വീപായ കവരത്തിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തറക്കല്ലിട്ടു

അറബിക്കടലിൽ ഗ്ലാസ്ബോട്ടിൽ യാത്ര ചെയ്ത് രാഷ്ട്രപതി ദ്വീപിലെ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മീൻപിടുത്ത ശൈലിയായ പോൾ ആന്റ് ലൈനിംഗ് ഫിഷിംഗ് നേരിൽ കണ്ടു

നിക്ഷേപത്തിന് തയ്യാറാവുന്നവർക്ക് അഴിമതി ഉൾപ്പെടെ മറ്റുവഴിക്ക് പണം ചെലവഴിക്കേണ്ടിവരില്ലു നിക്ഷേപ സൌഹൃദ അന്തരീക്ഷമാണ് കേരളത്തിൽ ദേശീയപ്പാതി വികസനം ജലഗതാഗതം അതിവേഗ റെയിൽവേ തുടങ്ങിയ കാർ്യങ്ങളിലെല്ലാം കേരളം കുതിക്കുകയാണ് ഇതിനെല്ലാം പുറമെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് നിതിആയോഗ് തന്നെ വിലയിരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേരളം ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണ്

രാജ്യത്ത് ഒന്നാം സ്ഥാനമാണിത്

കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സി ഇ ഒ ഇ സലാഹുദ്ദീൻ ആകാശവാണി വാർത്തകളോട്

പരിസരവാസികളെ ഒഴിപ്പിക്കേണ്ട മേഖലകളിൽ ഈ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ നിരോധനാജ്ഞ ഏർപ്പെടുത്തും

ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് ഡി എം

ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകൾക്കും തിങ്കളാഴ്ചവരെ അവധി പ്രഖ്യാപിച്ചു

നാളെ പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രളയ ചരിത്രവും സംബന്ധിച്ചും പൌരത്വവും മതേതരത്വവും സംബന്ധിച്ചും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും രാവിലെ സർവകലാശാലാ അസംബ്ലി ഹാളിൽ ഫ്രാൻസിലെ വി എസ് എൽ സർവകലാശാലയിലെ പ്രൊഫ കപിൽ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു ഹൌസ്ബോട്ട് ആലപ്പുഴ കൈനകരിയിൽ പണിമുടക്ക് അനുകൂലികൾ ഹൌസ്ബോട്ട് തടഞ്ഞിട്ട സംഭവത്തിൽ പുളിങ്കുന്ന് പോലീസ് നാലു പേരെ അറസ്റ് ചെയ്തു കൈനകരി സ്വദേശികളാണ് അറസ്റ്റിലായവർ നൊബേൽ സമ്മാന ജേതാവ് മൈക്കിൽ ലെവിറ്റും സ്ഫ്രവും സഞ്ചരിച്ച ഹൌസ് ബോട്ടാണ് ഇന്നലെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞത്

ഗവൺമെന്റിന്റെ അതിഥിയായി എത്തിയ മൈക്കൽ ലെവിറ്റിനെ തടഞ്ഞത് സമൂഹ്യ വിരുദ്ധരാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഐ കൊലപാതകം തിരുവനന്തപുരം കളിയിക്കാവിളയിൽ പോലീസ് സബ് ഇൻസ്പെക്ടറെ വെടിവച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് പ്രതികളുടെ സി സി ടി

പ്രതികൾ രക്ഷപ്പെട്ട വാഹനത്തെക്കുറിച്ചും സൂചന കിട്ടിയെന്ന് പോലീസ് പറഞ്ഞു തമിഴ്നാട് സ്വദേശി വിൽസൺ കഴിഞ്ഞ രാത്രിയാണ് കൊല്ലപ്പെട്ടത്

കോഴിക്കോട് കോർപ്പറേഷനിലെ ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിലവിൽ ഒന്നരലക്ഷം വീടുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായതായും മുന്ത്രി അറിയിച്ചു

ഇന്ന് മുതൽ തിരുവനന്തപൂരം ശംഖുംമുഖം മുതലപ്പൊഴി വലിയ തുറ പൂന്തുറ പൂപ്പാർ ്എന്നിവിടങ്ങളിൽ ആഴക്കടലിൽ സാങ്കേതിക പഠനങ്ങൾ നട്ത്തും കിഫ്ബിയുടെ സഹായത്തോടെ ചെന്നൈ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രമാണ് പഠനം നടത്തുന്നത്

കേസിലെ നാല് പ്രതികൾക്കും ഡൽഹി കോടതി നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു

മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പുതിയ അത്യാഹിത വിഭാഗം എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കാൻ മന്ത്രി കെ

ശൈലജ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി എയിംസ് മാതൃകയിൽ ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ട്രോമകെയർ സംവിധാനവും എമർജൻസി മെഡിസിൻ വിഭാഗവും ഉൾപ്പെടുന്നതാണ് പത്തുകോടിയോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാഹിത വിഭാഗത്തിന്റെ രണ്ടാം ഘട്ടം

രാജ്യത്തിന്റെ വികസനത്തിന് പ്രവാസി ഭാരതീയർ നൽകുന്ന് സംഭാവനകൾ തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് പ്രവാസി ഭാരതീയ ദിവസ്

വർക്കല കടയ്ക്കാവൂർ ചിറയിൻകീഴ് എന്നിവിടങ്ങളിൽ ട്രെയിനിന് സ്റ്റോപ്പുണ്ടാകും ഐ ലീഗ് ഫുട്ബോൾ ഐ ലീഗ് ഫുട്ബാളിൽ ഇന്ന് കോഴിക്കോട് നടക്കുന്ന ഹോഠ മത്സരത്തിൽ ആതിഥേയരായ ഗോകുലം കേരള എഫ് സി നിലവിലെ ചാംപ്യന്മാരായ ചെന്നൈ സിറ്റി എഫ് സിയെ നേരിടും വൈകീട്ട് ഏഴിന് കോഴിക്കോട് കോർപ്പറേഷന് സ്റ്റേഡിയത്തിലാണ് മത്സരം

മുൻ സീസണുകളിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ചെന്നൈ സിറ്റി എഫ്സിക്കായിരുന്നു മുൻതൂക്കം വൈകീട്ട് അഞ്ചിന് കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഇന്ത്യൻ ആരോസിനെ നേരിടും

ഇതിനോടനുബന്ധിച്ച് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സ്മൃതി സംഗമം സംഘടിപ്പിക്കും ജില്ലയിലെ പത്ത് കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച് വൈകീട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ സംഗമിക്കും

ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം മാർച്ച് രണ്ടു മുതൽ ഏപ്രിൽ മൂന്ന് വരെയാണ്